ഇന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും

സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് നൽകും പാലാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രസ്യ പ്രചാരണം ഇന്ന് ന് അവസാനിക്കും പ്രോട്ടെടുപ്പ് തിങ്കളാഴ്ച

നഷ്ടപരിഹാരം ഇൌടാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി

കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഡിജിപിയോട് ആരോഗ്യമന്ത്രി

ഇന്നലെ കണ്ണൂർ എറണാകുളം ജില്ലകളിലെ സന്ദർശനം സംഘം പൂർത്തിയാക്കിയിരുന്നു മലപ്പുറം ആലപ്പുഴ വയനാട് തൃശൂർ ജില്ലകളിലെ സ്ഥിതിഗതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘം നേരിട്ട് വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി പ്രകാശിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് സന്ദർശനം ആരംഭിച്ചത് ജില്ലാ കളക്ടർമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ഓരോ ജില്ലയിലേയും സാഹചര്യം വിലയിരുത്തിയ ശേഷമായിരുന്നു സന്ദർശിനും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം സംഘം കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറും മരട് എസ്സി കൊച്ചി മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ സുപ്രീം കോടതി നൽകിയ അന്ത്യശാസനം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകും ഫ്ളാറ്റുകളുടെ കാര്യത്തിൽ നഗരസഭ നടപടികൾ ആരംഭിച്ചതായി റിപ്പോർട്ട് നൽകുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് ഡൽഹിയിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റുള്ള കാര്യങ്ങൾ കോടതി തീരുമാനം അനുസരിച്ച് മന്നോട്ടു പോകുമെന്നും അദ്ദേഹം വൃക്തമാക്കി ഹർജി പരിഗണിക്കുന്ന തിങ്കളാഴ്ച ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകും അതിനിടെ ഫ്ളാറ്റിലെ താമസക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും ഇന്ന് പരിഗണനയ്ക്ക് വരുന്നുണ്ട്

വിവിധ വകുപ്പ് മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം സ്വച്ച് ഭാരത് സേവായജ്ഞത്തിലും സൈക്കിൾ റാലിയിലും പങ്കെടുക്കും ഇന്നലെ ശ്രീ മാണ്ഡവ്യ കപ്പൽ നിർമാണശാലയും ഉദ്യോഗ് മണ്ഡലത്തിൽ ഫാക്ടും സന്ദർശിച്ചിരുന്നു

മൂന്ന് മുന്ന്ണിക്ളും കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കത്തിലാണ് വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

ഇബ്രാഹിം കുഞ്ഞ്

വിഷയവുമായി ബന്ധപ്പെട്ട ഫയൽ താൻ കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണ സംഘത്തിനു മുമ്പാകെ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടില്ല അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഇബ്രാഹിംകൂഞ്ഞ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

സി

ആർ

എസ് സി

ഗവൺമെന്റിന്റെ ഭാഷാനയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുന്ന എല്ലാ വിജ്ഞാനശാഖകളിലും സാങ്കേതിക പദാവലി വികസിപ്പിക്കുന്ന പ്രവർത്തനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണയജ്ഞത്തിന്റെ ഭാഗമായി എസ്

ആർ ടി ഏറ്റെടുത്തിരുന്നു

ശൈലജ ഡി ജി

ആശുപത്രിയ്ക്കും ആശുപത്രി ജീവനക്കാർക്കുമെതിരെ നടക്കുന്ന ഒരക്രമത്തേയും അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു ഡോക്ടർ സമരം വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത സ്ട്ട്ട്വ്ത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഡോക്ടർമാർ കൂട്ട അവഗ്ഗിയെടുത്ത് പ്രതിഷേധിച്ചു ഡോക്ടർമാർ അവധിയെടുത്തിനെ മൂടർന്ന് ആശുപത്രിയിലെത്തിയ രോഗികൾ ബുദ്ധിമുട്ടിലായി

പി വിഭാഗം പ്രവർത്തിക്കുന്നില്ല സിഎജി ചെന്നിത്തല കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയിൽ സിഎജി ഓഡിറ്റ് നിഷേധിക്കുന്ന ഗവൺമെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി

ചുരം സന്ദർശിച്ച മരാമത്ത് അധികൃതർ വലിയ കുഴികൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വലിയ വാഹനങ്ങൾക്ക് അനുമതി നിഷേധിച്ചത്

രാജ്യത്തൊട്ടാകെ പ്രചാരണ യജ്ഞം നടത്തുമെന്നും ശ്രീ റാവു പറഞ്ഞു ഇടമലക്കുടി ഇൻട്രോ സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടുക്കിയിലെ ഇടമലക്കുടിക്ക് ഇനി സ്വന്തം വില്ലേജ് ഓഫീസ്

ചരസ് വയനാട് മുത്തങ്ങയിൽ രണ്ട് കിലോ ചരസ്സുമായി കോഴിക്കോട് സ്വദേശി അറസ്റ്റിൽ ചെക്പോസ്റ്റിൽ എക്സൈസ് സംഘം വാഹന പരിശോധന നടത്തുന്നതിനിടെ മൈസൂരിൽ നിന്നും പൊന്നാനിയിലേക്ക് വരുകയായിരുന്ന കെ എസ്

ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ചരസ്

സാംസ്കാരിക സമ്മേളനം പുസ്തക പ്രകാശനം നാടകാവതരണം കവിയരങ്ങ് കഥാപ്രസംഗമേള തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്

ബംഗാൾ ഉൾക്കടലിലും അറ്റബിക്കടലിലുമായി രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങളുടെ ഫ്ലിമായാണ് മഴയ്ക്ക് സാധ്യത

മുംബൈയിൽ ഇന്ന് കനത്ത് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്